പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നടക്കുന്ന പ്രതിഷേധ ങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് വിദേശ കാര്യ സഹമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി അടൽ ഭൂജൽ യോജന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള ഗുജറാത്ത് മത്സര ത്തിന് ഇന്ന് തുടക്കം

ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും ദേശീയ പൌരത്വ രജിസ്റ്ററും തമ്മിൽ ബന്ധമില്ലെന്നും അമിത് ഷാ അറിയിച്ചു ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിലെ വ്യക്തി ഗത വിവരങ്ങൾ ദേശീയ പൌരത്വ രജിസ്റ്ററിനായി ഉപയോഗി ക്കില്ലെന്ന് ന്യൂഡൽഹിയിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പുറഞ്ഞു ദേശീയ ജന സംഖ്യാ രജിസ്റ്ററിനെക്കുറിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിപ്പി ക്കുന്നവർ വാസ്തവത്തിൽ പാവ്പ്പെട്ടവർക്കും ന്യൂനപക്ഷ ങ്ങൾക്കും ലഭിക്കുന്ന നേട്ടങ്ങൾ ഇല്ലാതാക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രി അഭിപ്രായപ്പെട്ടു ഗവൺമെന്റ് നടപ്പാക്കുന്ന് ഒട്ടേറെ ക്ഷേമപദ്ധതികളുടെ അടിസ്ഥാനം ഇത്തരം സർവ്വേകളാണ് ഈ സർവ്വേകൾ നട ത്തിയില്ലെങ്കിൽ പാചകവാതകംപോലും പാവങ്ങളുടെ വീടു കളിൽ എത്തില്ലെന്ന് അമിത് ഷാ പറഞ്ഞു പത്തുവർഷം കൂടു മ്പോഴാണ് സെൻസസ് നടത്തുന്നത് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ യു

എ ഗവൺമെന്റിന്റെ കാലത്താണ് ആരംഭിച്ച തെന്നും നല്ലതാണെന്ന് വിലയിരുത്തിയാണ് അതുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്നും അമിത് ഷാ അറി യിച്ചു വീടിന്റെ വിസ്തീർണ്ണം കന്നുകാലികളുടെ എണ്ണം തുട ങ്ങി പുതിയ കാര്യങ്ങൾ ഇത്തവണ ദേശീയ ജനസംഖ്യാ രജി സ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ഇതിനെതിരെ പ്രതിഷേധിച്ച വർക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ പൌരത്വ നിയമഭേദഗതിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ അജ്ണ്ടയുണ്ടെന്ന് വിദേശകാര്യ സഹമന്ത്രി വി

കോഴിക്കോട് അഭിഭാഷക പരിഷത്ത് സംഘട്ടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾക്ക് നടപ്പാക്കാൻ സാധിക്കാതെ പ്യോയ കാര്യം ഈ ഗവൺമെന്റ് നടപ്പാക്കുന്നതിലെ ജാള്യതയാണ് അവർക്കെന്നും അദ്ദേഹം പറഞ്ഞു

സി പ്രസിഡന്റുൾപ്പടെയുള്ളവർക്ക് നൽകിയ സ്ഥീകര ണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നിച്ചുള്ള സമരത്തിന് ആഹ്വാനം ചെയ്യുകയും തരം കിട്ടുമ്പോൾ കോൺഗ്രസിനോട് കണക്ക് തീർക്കുകയും ചെയ്യുക എന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച ഷാഫി പറമ്പിൽ എം

എ ആരോപിച്ചു

വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോ ഴാണ് പൊക്രാനിൽ ഇന്ത്യ രണ്ടാം ആണവ പരീക്ഷണം വിജ യകരമായി പൂർത്തിയാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാജ്പേയിയുടെ പ്രതിമ ലഖ്നൌവിലെ ലോക്ഭവനിൽ ഇന്ന് അനാവരണം ചെയ്യും

പഞ്ചായത്തുക ളിൽ ഭൂഗർഭ ജലത്തിന്റെ നിർവ്വഹണം പ്രോത്സാഹിപ്പിക്കാ നാണ് കേന്ദ്ര ഗവൺമെന്റ് അടൽ ഭൂജൽ യോജന നടപ്പാ ക്കുന്നത് ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ പദ്ധതിക്ക് ആറാ യിരം കോടി രൂപ അനുവദിച്ചിരുന്നു

ന്യൂഡൽഹിയിൽ ആകാശവാണി വാർഷിക അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡിജിറ്റൽ റേഡിയോ വഴി പരിപാടികൾ കൂടുതൽ സ്ഥല ങ്ങളിൽ വൃക്തതയോടെ കേൾക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു

ആകാശവാണി വാർത്തകൾക്ക് വൻ സ്വീകാര്യത യാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പ്രസാർ ഭാരതി ചെയർമാൻ ഡോ

പ്രസാർ ഭാരതി സി

ഒ ശശിശേഖർ വെമ്പതിയും ചടങ്ങിൽ പങ്കെടുത്തു ഝാർഖണ്ഡിൽ മഹാസഖ്യ നേതാവ് ഹേമന്ദ് സോറൻ ഞായറാഴ്ച മുഖ്യമന്ത്രിയായ സത്യപ്രതിജ്ഞ ചെയ്യും

അതിനിടെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി ആലംഗീർ ആലത്തെ തെരഞ്ഞെടുത്തു ലോകമെങ്ങും ക്രൈസ്തവർ ഇന്ന് ക്രിസ്മസ് ആഘോ ഷിക്കുന്നു അർദ്ധരാത്രി മുതൽ തിരുപ്പിറവി ആഘോഷങ്ങൾ തുടങ്ങി ക്രൈസ്ത ദേവാലയങ്ങളിൽ പാതിരാ കുർബ്ബാനയും തിരുകർമ്മങ്ങളും നടന്നു നക്ഷത്രങ്ങളും പുൽക്കൂടുമൊരു ക്കിയാണ് വിശ്വാസികൾ ക്രിസ്മസ്സിനെ വരവേറ്റത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും ജനങ്ങൾക്ക് ക്രിസ്മസ് ആശംസ നേർന്നു സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സാഹോദര്യ ത്തിന്റെയും സന്ദേശങ്ങൾ പിന്തുടരാൻ മാനവരാശിക്ക് പ്രചോദനമായ യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആഘോ ഷിക്കണമെന്ന് രാംനാഥ് കോവിന്ദ് സന്ദേശത്തിൽ പറഞ്ഞു മനുഷ്യന്റെ കുറവുകളും അപൂർണതകളും സ്വീകരിച്ച് നിരുപാധികം അവനെ സ്നേഹിക്കുകയാണ് യേശുക്രിസ്തു ചെയ്തതെന്ന് വെങ്കയ്യ നായിഡു പറഞ്ഞു നമ്മിൽ എത്ര മോശക്കാരെയും ദൈവം എങ്ങനെ സ്നേഹിക്കുന്നുവെന്നാണ് യേശുവിന്റെ ജന്മദിനാഘോഷം മാനവരാശിയെ ഓർമ്മിപ്പിക്കുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു യേശുക്രിസ്തുവിന്റെ ജന്മസ്ഥലമായ ബത്ലഹേ മിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ ദേവാലയത്തിൽ അല്പംമുമ്പ് ദിവൃബലിയും കുമ്പസാരവും ആരംഭിച്ചു ഇടുക്കിയിലെ ക്രൈസ്തവദൈവാലയങ്ങളിൽ പാതിരാത്രിയിൽ ഉണ്ണിയേശുവിന്റെ പിറവിയുടെ തിരുക്കർമ്മങ്ങളും വിശുദ്ധ കുർബാനയും നടന്നു വാഴത്തോപ്പ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു മലയോര ഗ്രാമങ്ങളിലെ പള്ളികളിലും ആയിരക്കണക്കിനു വിശ്വാസികൾ രാത്രിയിലെ പിറവിത്തിരുനാൾ ചടങ്ങുകളിൽ പങ്കെടുത്തു മണ്ഡലകാലം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക് തിരക്ക് നിയന്ത്രിക്കുന്നതിനായി തീർത്ഥാടകരെ പമ്പയിൽ തടഞ്ഞു

സി അടക്കം എല്ലാ വാഹനങ്ങളും നിലക്കലിൽ തടഞ്ഞു ഇന്ന് രാത്രി മുതൽ ഇടത്താവളങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തും രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള ഗുജറാത്ത് മത്സരം ഇന്ന് ആരംഭിക്കും സൂററ്റിൽ നടക്കുന്ന മത്സർത്തിൽ ഗുജ റാത്ത് ടീമിൽ ലോക ഒന്നാം നമ്പർ ബൌളർ ജസ്പ്രീത് ബുംറ കളിക്കും

സി ടെസ്റ്റ് റാങ്കിംഗിൽ തുടർച്ചയായ നാലാം വർഷവും ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ റൺസ് നേടുന്ന താരമെന്ന പദവി ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോലി ക്ക്

നാഗ്പൂരിൽ അഖിലേന്ത്യാ അന്തർസർവകലാശാല വനിതാ ഷട്ടിൽ ബാഡ്മിന്റൺ ചാംപൃൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാല സെമിയിൽ പ്രവേശിച്ചു കാർട്ടറിൽ റാഞ്ചി സർവകലാശാലയെ ഒന്നിനെതിരെ രണ്ട് സെറ്റുകൾക്കാണ് കാലിക്കറ്റ് പരാജ യപ്പെടുത്തിയത് ഇന്ന് രാവിലെ നടക്കുന്ന സെമിഫൈനലിൽ കാലിക്കറ്റ് പൂനെ സാവിത്രി ഭായ് ഫുലെ സർവകലാശാലയെ നേരിടും കണ്ണൂർ ജില്ലയിലെ കൂടാളി പഞ്ചായത്തിൽപ്പെട്ട നായിക്കാലി പ്രദേശം അന്താരാഷ്ട്ര വിനോദ സഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കുന്ന ടൂറിസം കേന്ദ്രമായി വളർത്തുമെന്ന് മന്ത്രി ഈപി ജയരാജൻ പറഞ്ഞു

പ്രകൃതി സൌന്ദര്യവും ജൈവ വൈവിധ്യവും ഒത്തിണങ്ങിയ നായിക്കാലി മികച്ചൊരു ടൂറിസം കേന്ദ്രമാവാൻ എന്തു കൊണ്ടും അനുയോജ്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു

കിൻഫ്ര പാർക്ക് അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി തദ്ദേശസ്യംഭരണ സ്ഥാപനങ്ങൾ ്അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവലോകനം നടത്തണമെന്ന് മന്ത്രി ടി

കോഴിക്കോട് തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഐ

ചുവപ്പുനാടയിൽ കുരുങ്ങാതെ ജനസേവനം വേഗത്തിലാക്കാൻ ഉദ്യോഗ സ്ഥരും ജനപ്രതിനിധികളും ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ ഇന്ന് കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും അഖില കേരള തന്ത്രി മണ്ഡലം സംസ്ഥാന സമ്മേളനവും ദീൻ ദയാൽ ട്രോഫി കേരള കബഡി ലീഗും കലയപുരം ആശ്രയ സങ്കേതത്തിലെ പുതിയ മന്ദിരവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട്ട് മാവോയിസ്റ്റ് പ്രവർത്തനവുമായി ബന്ധ

എയെ ഏൽപ്പിച്ചത് പ്രതിഷേധാർഹ മാണെന്ന് സി

എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരു വനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു കേസിൽ വ്യക്ത മായ അന്വേഷണവുമായി സംസ്ഥാന പൊലീസ് മുന്നോട്ട് പോവുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം എൻ

എയെ ഏൽപ്പിച്ചതെന്ന് പാർട്ടി കുറ്റപ്പെടുത്തി ക്രമസമാധാനം സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതലത യായിരിക്കെ ഗവൺമെന്റുമായി ആലോചിക്കാതെ കേസ് എൻ

എയെ ഏൽപ്പിച്ച നടപടി ഫെഡറൽ സംവിധാ നത്തെ ദുർബ്ബലപ്പെടുത്തുമെന്ന് സി

എം പറഞ്ഞു